പോളിംഗ് സാമഗ്രികളുടെ വിതരണം പൂർത്തിയായി ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഏഴാമത്തെയും അവസാനത്തെയും ഘട്ട വോട്ടെടുപ്പിന് വിജ്ഞാപനം പുറപ്പെടുവിച്ചു ്റ്

മന്ത്രി എ കെ ശശീന്ദ്രൻ സംഭവത്തിൽ റിപ്പോർട്ട് ആവശ്യപ്പെട്ടു ഐ പി എൽ ക്രിക്കറ്റിൽ രാജസ്ഥാൻ റോയൽസ് ഇന്ന്

മൂന്നാംഘട്ട ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പരസ്യപ്രചാരണം ഇന്നലെ വൈകിട്ട് അവസാനിച്ചു ഇന്ന് സ്ഥാനാർത്ഥി കൾ നിശ്ശബ്ദ പ്രചാരണത്തിലാണ് ഒരു മാസത്തിലേറെ നീണ്ട തെരഞ്ഞെടുപ്പ് പ്രചാര ണ സമാപനത്തിൽ കൊട്ടിക്കലാശം ഇന്നലെ സംസ്ഥാ നത്ത് പലയിടത്തും വ്യാപകമായ അക്രമ്പസംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു

നിഷ്പക്ഷ വോട്ടു കൾ തങ്ങളുടെ തട്ടകത്തിലേക്ക് കൊണ്ടുവരാനായി വീടുകളും സ്ഥാപനങ്ങളും കയറി മുന്നണി പ്രവർത്തകർ പ്രചാരണം നടത്തുകയാണ് വോട്ടുറപ്പി ക്കുന്നതിനുള്ള അവസാനവട്ട പ്രചാരണത്തിലാണ് സ്ഥാനാർത്ഥികൾ

വിവിപാറ്റ് യന്ത്രത്തിലെ വോട്ട് രസീതി സൂക്ഷിക്കുന്ന കവറുകളും പ്രത്യേക കൂടുകളും ഇത്തവണ കിറ്റിലുണ്ടാകും പേനകൾ അര ക്ക് മഷി തീപ്പെട്ടി തുടങ്ങി ഓരോ ബൂത്തിലേക്കും നൂറിനം സാധനങ്ങളാണ് കവറിലുണ്ടാവുക

പ്രശ്ന സാധ്യതാ ബൂത്തുകളിൽ അധിക സുരക്ഷ ഏർപ്പെടുത്തി

വടകര നഗരസഭ പരിധിയിലും ഒഞ്ചിയം നാദാപുരം പേരാമ്പ്ര കുന്നുമ്മൽ പഞ്ചായ ത്തുകളിലുമാണ് നിരോധനാജ്ഞ

വോട്ടർ പട്ടികയിൽ ക്രമക്കേടു കൾ കണ്ടെത്തിയെന്നും കള്ള വോട്ടു ചെയ്യാനുള്ള ഒരു നീക്കവും നടക്കില്ലെന്നും കലക്ടർ മാധ്യമങ്ങളോട് പറഞ്ഞു

കേസ് വെള്ളിയാഴ്ച വീണ്ടും പരിഗണി ക്കും നേരത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സിനിമയ്ക്ക് വിലക്ക് ഏർപ്പെടുത്തിയിരുന്നു

സിനിമ കണ്ടതിന്ശേഷം തീരുമാനമെടുക്കണമെന്നാ വശ്യപ്പെട്ടാണ് നിർമ്മാതാക്കൾ കോടതിയെ സമീപിച്ച ത്

ഈ തീയതിക്കകം മദ്രാസ് ഹൈക്കോ ടതിക്ക് തീരുമാനത്തിലെത്താൻ കഴിയാതെ വന്നാൽ വിലക്ക് സ്വയം ഇല്ലാതെയാകുമെന്ന് സുപ്രീംകോടതി വൃക്തമാക്കി

നേരത്തെ നിരുപം കേന്ദ്രമന്ത്രിക്കെതിരെ നൽകിയ അപകീർത്തി കേ സിൽ സ്മൃതി ഇറാനിയ്ക്ക് നോട്ടീസ് അയച്ച നടപടി ഡൽഹി ഹൈക്കോടതി റദ്ദാക്കിയിരുന്നു എന്നാൽ നിരുപം ഈ ആവശ്യം ഉന്നയിച്ച് നൽകിയ ഹർജി ഡൽഹി ഹൈക്കോടതി തള്ളി തുടർന്നാണ് അദ്ദേഹം സുപ്രീംകോടതിയെ സമീപിച്ചത്

ഇവരെ ചോദ്യം ചെയ്യുന്നതിനായി ക്രിമിനൽ ഇൻവ സ്റ്റി ഗേ ഷൻ ഡിപ്പാർട്ട്മെന്റിന് കൈമാറിയതായി ശ്രീലങ്കൻ പൊലീസ് അറിയിച്ചു

ഇന്നലെ രാവിലെയാണ് മൂന്ന് ക്രിസ്ത്യൻ പള്ളികളിലും ആഡംബര ഹ്യോട്ടലുകളിലും സ്ഫോടനമുണ്ടായത്

ദുബായിൽ നിന്ന് റസിയയുടെ ഭർത്താവും ബന്ധുക്കളും കൊളംബൊയിൽ എത്തിയ ശേഷമായിരിക്കും ഖബറടക്കം ബെംഗ്ലൂരുവിലേക്ക് പോകുന്നതിനിടെ സ്ഥകാര്യ ടൂറിസ്റ്റ്ബസിൽ യാത്രക്കാരെ ജീവനക്കാർ മർദ്ദിച്ച സംഭ വത്തിൽ മൂന്ന് പേരെ കസ്റ്റഡിയിലെടുത്തു ബസ് കമ്പനി മാനേജർ ഉൾപ്പെടെ മൂന്ന് ജീവനക്കാരെയാണ് കൊച്ചി മരട് പൊലീസ് കസ്റ്റഡിയിലെടുത്തത് ഹരി പ്പാട് ബസ്സ് തകരാറിലായപ്പോൾ ചോദ്യം ചെയ്ത യാത്ര ക്കാരെ ജീവനക്കാർ പിന്തുടർന്നെത്തി മർദ്ദിക്കുകയാ യിരുന്നു ഇതുസംബന്ധിച്ച ചാനൽ വാർത്തയുടെ അടിസ്ഥാനത്തിലാണ് കേസെടുത്തത്

കെ ശശീന്ദ്രൻ ഗതാഗത വകുപ്പ് കമ്മീഷണറോട് റിപ്പോർട്ട് തേടി കർണ്ണാടക രജി സ്ട്രേഷനിലുള്ള ബസ്സിന്റെ പെർമിറ്റ് റദ്ദാക്കാൻ കർണാ ടക ട്രാൻസ്പോർട്ട് കമ്മീഷണറോട് മന്ത്രി ആവശ്യപ്പെ ട്ടു കലക്കലക്ക കോലാപൂരിൽ അഞ്ചാമത് ദേശീയ ജൂനിയർ വനിതാ ഫുട്ബോളിൽ കേരളത്തിന് ജയം ആന്ധ്രയെ ആറ് ഗോളിനാണ് കേരളം തോൽപിച്ചത്

ഐ പി എൽ ക്രിക്കറ്റിൽ ഇന്ന് രാജസ്ഥാൻ റോയൽസ് ഡൽഹി കാപ്പിറ്റൽസിനെ നേരിടും ജെയ്പൂരിൽ രാത്രി എട്ടിനാണ് മത്സരം

വയനാട് പത്തനംതിട്ട ജില്ലകളിൽ ശക്തമായ മഴയുടെ സാധ്യത മുൻനിർത്തി യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു മലയോര മേഖലകളിലേക്ക് വൈകിട്ട് ഏഴുമുതൽ രാവിലെ ഏഴുവരെ യാത്ര ഒഴിവാക്കണമെന്ന് മുന്നറി യിപ്പുണ്ട്

മാസത്തിൽ രണ്ടാമ ത്തെയും നാലാമത്തെയും ശനിയാഴ്ചകളിൽ മാത്ര മാണ് ബാങ്കുകൾക്ക് അവധി മറ്റു ശനിയാഴ്ചകളിൽ ബാങ്കുകൾ സാധാരണപോലെ പ്രവർത്തിക്കുമെന്നും ആർ ബി ഐ വ്യക്തമാക്കി

ആദിവാസികളും ഭൂരഹിതരുമടങ്ങുന്ന ആളുകളാണ് ഭൂമിയിൽ കൊടികെട്ടി അവകാശം സ്ഥാപിച്ചത് ആദി വാസി ഭാരത്സഭ ഓൾ ഇന്ത്യാ ക്രാന്തികാരി കിസാൻസഭ എന്നീ സംഘടനകളുടെ നേതൃത്വ ത്തിലാണ് സമരം തൃശൂർ വെറ്റിലപ്പാറ പതിനഞ്ചിൽ കാട്ടാനകൾ വ്യാപ കമായി കൃഷി നശിപ്പിക്കുന്നതായി പരാതി വനാതിർത്തിയിൽ സ്ഥാപിച്ച സോളാർ വേലി തകർന്ന തോടെയാണ് വന്യമൃഗങ്ങൾ തീറ്റതേടി ജനവാസമേഖ ലകളിലേക്ക് എത്തുന്നത് പ്രദേശത്തെ വഴിവിളക്കുകൾ പ്രവർത്തിക്കാത്തും വന്യജീവികൾ നാട്ടിലേക്കിറങ്ങാൻ കാരണമാണെന്ന് പറയപ്പെടുന്നു ഇടുക്കിയിലെ വിദൂര ആദിവാസി ഗ്രാമവും സംസ്ഥാനത്തെ പ്രഥമ ഗോത്രവർഗ്ഗ പഞ്ചായത്തുമായ ഇടമലക്കുടിയിൽ കാട്ടാനയാക്രമണത്തിൽ മൂന്നു കെട്ടിടങ്ങൾ തകർന്നു

ക്ഷേത്രം അടിയന്തരക്കാരുടെ സാന്നിധ്യ ത്തിൽ ക്ഷേത്രം കണക്കപ്പിള്ളയാണ് വൈശാഖ മഹോ ത്സവത്തിന് തീയതി കുറിച്ചത് ഒഡിഷയിലെ ബലേസോർ രൂപത ബിഷപ്പ് ഡോക്ടർ സൈമൺ കൈപ്പുറം അന്തരിച്ചു

ബിൻസെന്റിയൻസ് സന്യാസ സമൂഹ ത്തിലെ അംഗമായ അദ്ദേഹം തണ്ണീർമുക്കം സ്വദേശി യാണ്

കുറിച്ച്യാട് റേയ്ഞ്ചിലെ കുപ്പാടി ഫോറസ്റ്റ് സ്റ്റേഷൻ പരിധിയിലെ കരുണാകരനാണ് പരിക്കേറ്റത്

പരിക്കേറ്റ ഇദ്ദേഹത്തെ കോഴിക്കോട് മെഡിക്കൽ കോളജ് ആശു പത്രിയിൽ പ്രവേശിപ്പിച്ചു